പരീക്ഷാപേ ചർച്ച പരിപാടിയിൽ രണ്ടാംതവണയാണ് പ്രധാനമന്ത്രി വിദ്യാർത്ഥി കളുമായി സംവദിക്കുന്നത് ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുക്കും

മൈ ഗവൺമെന്റ് പോർട്ടലിൽ ഓൺലൈൻ മത്സരത്തിലൂടെ തെരഞ്ഞെടുത്ത രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പരീ ക്ഷാപേ ചർച്ചയിൽ പങ്കാളികളാകും രാജ്യത്തെ വിദ്യാർത്ഥികൾക്കുപുറമ വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഇത്തവണ അവസരം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ചർച്ചയ്ക്കുശേഷം വിദ്യാർത്ഥികളിലെ പരീ ക്ഷാസമ്മർദ്ദം കുറയ്ക്കാൻ മാനവ വിഭവശേഷി മന്ത്രാലയം തയ്യാറാക്കിയ നടപടികൾ വിശദമാക്കുന്ന ഹ്രസ്വചിത്രവും വേദിയിൽ പ്രദർശിപ്പിക്കും വിവിധ കലോത്സവങ്ങളിലെ വിജയികളും പരിപാടിയിൽ പങ്കെടുക്കും ആകാ ശവാണിയും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും സി ബി എസ് ഇ സ്കൂളുകളിലും മറ്റ് വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങളിലും ചർച്ചാ പരിപാടി തത്സമയം പ്രദർശിപ്പിക്കാൻ നട പടിയെടുത്തിട്ടുണ്ട് രുട്ട്ട്ട്ട്ട്ട്ട്ട കോൺഗ്രസ് ഭരണത്തിലെത്തിയാൽ പാവപ്പെട്ട എല്ലാവർക്കും മിനിമം വേതനം ഉറപ്പാക്കുമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ പ്രഖ്യാപനം നടപ്പാക്കാൻ ഉദ്ദേശിച്ച് പുറപ്പെടുവിച്ചതല്ലെന്ന് ബി ജെ പി അഭി പ്രായപ്പെട്ടു പണ്ടും നടത്തിയ നൂറുകണക്കിന് പാഴ്പ്രഖ്യാപനങ്ങളുടെ തുടർച്ച യാണ് ഇതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ രവിശങ്കർ പ്രസാദ് ന്യൂഡൽഹിയിൽ പറഞ്ഞു കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ രാജ്യത്തിന്റെ മുഖച്ഛായ എന്നേ മാറുമാ യിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ കർഷ കറാലിയിലാണ് ഭരണത്തിലെത്തിയാൽ എല്ലാവർക്കും മിനിമം വരുമാനം ഉറപ്പാക്കുമെന്ന രാഹുൽഗാന്ധിയുടെ പ്രഖ്യാപനം ൾട്ട്ട്ട്ട്ട്ട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വന്തം ജില്ലകളിൽ ജോലി ചെയ്യുന്ന ഗവൺമെന്റ് ജീവനക്കാരെ സ്ഥലംമാറ്റാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ നാല് വർഷങ്ങ ളിൽ മൂന്നുവർഷമായി ഒരേ ജില്ലയിൽ ജോലിചെയ്തവരെയും സ്ഥലംമാറ്റ ണം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും ചീഫ് ഇലക്ടറൽ ഓഫീ സർമാർക്കും ഈ ആവശ്യമുന്നയിച്ച് കമ്മീഷൻ കത്തയച്ചു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ജീവനക്കാരുടെ കാര്യത്തിൽ സ്ഥലം മാറ്റം ആവശ്യമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി മുൻ തെരഞ്ഞെടുപ്പുകളു മായി ബന്ധപ്പെട്ട് അച്ചടക്ക നടപടി നേരിട്ടവരെയും ക്രിമിനൽ കേസുകളിൽ കോടതി നടപടി നേരിടുന്നവരെയും തെരഞ്ഞെടുപ്പ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഉച്ചകഴിഞ്ഞ് ചേരുന്ന ബൂത്ത് പ്രസിഡന്റുമാരുടെയും വനിതാ വൈസ് പ്രസിഡന്റുമാരുടെയും സംഗമം രാഹുൽഗാന്ധി ഉദ്ഘാടനം ചെയ്യും അന്തരിച്ച കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസിന്റെ വസതി അദ്ദേഹം സന്ദർശിക്കും

ഡി എഫ് നേതാ ക്കളുമായി അനൌപചാരിക കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഘടകകക്ഷി നേതാക്കളുമായി അദ്ദേഹം ചർച്ച ചെയ്യും രാഹുൽഗാന്ധിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇന്ന് ഉച്ചയ്ക്കുശേഷം കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ന് വിളിച്ച ബൂത്ത് പ്രസിഡന്റുമാരുടെയും വനിതാ നേതാക്കളുടെയും സമ്മേളനം പാർട്ടിക്ക് ഊർജ്ജം പകരുമെന്ന് കെ

സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് അഭിപ്രായപ്പെ ട്ടു ബൂത്ത് പ്രസിഡന്റുമാരുടെ പ്രത്യേക സമ്മേളനം കോൺഗ്രസിന്റെ ചരി ത്രത്തിൽ ആദ്യമായാണെന്നും കൊടിക്കുന്നിൽ വെളിപ്പെടുത്തി രുട്ടിട്ട്ട്ട്ട്ട്ട്ട്ട പ്രളയത്തിൽപ്പെട്ടവർക്ക് ബാങ്ക് വായ്പയിലൂടെ ഉപജീവന മാർഗ്ഗം പുന രാരംഭിക്കാൻ ഗവൺമെന്റ് ആവിഷ്ക്കരിച്ചു ഉജ്ജീവന സഹായ പദ്ധതി വ്യക്തതവരുത്തി ഒരാഴ്ചക്കകം പ്രഖ്യാപിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി ബാങ്കുകൾ ഇതുമായി ബന്ധ പ്പെട്ട് ഉന്നയിച്ച ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കാനും ജില്ലാതലങ്ങളിൽ പര മാവധി വായ്പ അനുവദിക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

പ്രളയത്തിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കായി നിർമ്മിക്കുന്ന വീടു കൾ അടുത്ത മഴക്കാലത്തിന് മുമ്പ് പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേ ശിച്ചു

ഈ വിഷയങ്ങളിലെ ഏകോപനത്തിന് മന്ത്രി ഇ ചന്ദ്രശേഖ രനെ ചുമതലപ്പെടുത്തി

ശിശുക്ഷേമ സമിതി ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും അമ്മത്തൊട്ടിലിൽ കുട്ടികൾ എത്തുന്ന സമയത്തുതന്നെ ജില്ലാ കല ക്ടർക്കും ശിശുക്ഷേമ സമിതിക്കും സന്ദേശം എത്തുന്ന തരത്തിലാണ് നവീ കരിച്ച തൊട്ടിലുകളുടെ പ്രവർത്തനം

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട സംസ്ഥാനത്ത് പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ജീവിത സാഹചരൃം മെച്ചപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് നിരവധി ക്ഷേമപ ദ്ധതികൾ നടപ്പാക്കിവരികയാണെന്ന് മന്ത്രി കെ

സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആറന്മുള യിൽ സ്വയംതൊഴിൽ വായ്പാ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ജി പി മനോജ് എബ്രഹാം ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകി അതേസമയം മേലുദ്യോഗസ്ഥനെ അറിയിക്കാതെ പരിശോധനക്ക് പോയതിൽ ജാഗ്രതക്കുറവുണ്ടായി എന്ന് റിപ്പോർട്ടിലുണ്ട് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ റിപ്പോർട്ട് പരിശോധിക്കും തുടർന്ന് മുഖ്യമന്ത്രിയായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടി സ്ഥീകരിക്കുക

ലീലാവതി കേന്ദ്രസാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിന് അർഹയായി വാൽമീകി രാമായണം കാവ്യം സംസ്കൃ തത്തിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റിയതിനാണ് പുരസ്കാരം തക ഴിയുടെ ചെമ്മീൻ രാജസ്ഥാനിയിലേക്ക് മൊഴിമാറ്റിയ മനോജ്കുമാർ സ്ഥാമി ഒ

വിയുടെ ഈ പുരാതന കിന്നരം നേപ്പാളി ഭാഷയിലേക്ക് മൊഴിമാ റ്റിയ മോണിക്ക മുഖ്യ ജി ആർ ഇന്ദുഗോപന്റെ മണിയൻപിള്ളയുടെ ആത്മ കഥ തമിഴിലേക്ക് വിവർത്തനം ചെയ്ത കുളച്ചൽ മുഹമ്മദ് യൂസുഫ് എന്നി വരും അക്കാദമി പുരസ്കാരത്തിന് അർഹരായി രുട്ട്ട്ട്ട്ട്ട്ട്ട്ട മലപ്പുറം കോട്ടപ്പുറം സ്റ്റേഡിയത്തിൽ ദേശീയ പൊലീസ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള പൊലീസിന് ജയത്തുടക്കം ഗ്രൂപ്പ് ഇ യിലെ ആദ്യമത്സരത്തിൽ സിക്കിമിനെ മറുപടിയില്ലാത്ത ഒരുഗോളിന് കേരളം തോൽപ്പിച്ചു മറ്റൊരു മത്സരത്തിൽ ഗോവ പൊലീസ് മറുപടിയില്ലാത്ത മൂന്നുഗോളിന് ഹരിയാനയെയും പഞ്ചാബ് പൊലീസ് രണ്ടിനെതിരെ മൂന്ന് ഗോളിന് ഉത്തരാഖണ്ഡിനെയും തോൽപ്പിച്ചു

ഐ എസ് എഫ് എതിരില്ലാത്ത മൂന്ന് ഗോളിന് ആർ

എഫിനേയും ത്രിപുര ജമ്മു കശ്മീരിനെ നാലു ഗോളിനും മിസോറം ഒമ്പത് ഗോളിന് രാജസ്ഥാൻ പൊലീസിനെയും അസം റൈഫിൾസ് രണ്ട് ഗോളിന് മധ്യപ്രദേശ് പൊലീസിനേയും തോൽപ്പിച്ചു രുടെട്ടറു തിരുവനന്തപുരത്ത് ഇംഗ്ലണ്ട് ലയൺസിനെതിരായ ഇന്ത്യ എ ടീമിന്റെ നാലാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് തുടങ്ങും

അങ്കിത് ബാവ്നെയാണ് ഇന്ന് ടീമിനെ നയിക്കുന്നത്

പുരുഷ വിഭാഗത്തിൽ ഇടുക്കിയും വനിതാവിഭാഗത്തിൽ കൊല്ലവും രണ്ടാമതെത്തി

നിലവിൽ ചാമ്പ്യൻമാരാണ് കേരളം

പി ഷാജിയാണ് കോച്ച് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട കായികമേഖലയുടെ വളർച്ചയ്ക്കായി കേന്ദ്രഗവൺമെന്റ് പ്രഖ്യാപിച്ച ഖേലോ ഇന്തൃയുടെ ഭാഗമായി വനിതാ വോളിബോൾ അക്കാദമി പത്തനം തിട്ട പ്രമാടം രാജീവ്ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രവർത്തനമാരംഭി ച്ചു

ജെ കുരൃൻ ഉദ്ഘാടനം ചെയ്തു

കാട്ടുതീ പടരാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നിരോധനം ജില്ലാ വനംവകുപ്പും തമിഴ്നാട് വനംവകുപ്പും സംയുക്തമായി നിരോധനം നടപ്പാക്കും

കെ വിജയൻ അന്തരിച്ചു

കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകീട്ടായിരുന്നു അന്തൃം ന്യൂഡൽഹി വല്ലഭായ് പട്ടേൽ ചെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ റിസർച്ച് ഓഫീസറുമായിരുന്നു ഭോപ്പാൽ വാതകദുരന്തത്തെ തുടർന്ന് കേന്ദ്രഗവൺമെന്റ് നിയോഗിച്ച മെഡിക്കൽ സംഘത്തിലെ മുഖ്യ അന്വേഷകനായിരുന്നു

ബി ബി എസ് പൂർത്തിയാക്കിയ അദ്ദേഹം ശ്വാസ കോശരോഗ ഗവേഷണരംഗം തെരഞ്ഞെടുക്കുകയായിരുന്നു സംസ്കാരം ഉച്ചയ്ക്ക് തിക്കോടിയിലെ വീട്ടുവളപ്പിൽ നടത്തും

വൈകീട്ട് നാലിന് ചെർക്കളയിൽ കർണാടക മന്ത്രി യു ടി ഖാദർ യാത്ര ഉദ്ഘാടനം ചെയ്യും

രാവിലെ മുഖാമുഖം പരിപാടിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ ടി കെ രാജീവ്കുമാർ ബീനാ പോൾ തുടങ്ങിയവർ പങ്കെടുക്കും

കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ അധ്യാ പകനെതിരെ വിദ്യാർത്ഥി നൽകിയ പരാതി പരിശോധിച്ചായിരുന്നു കമ്മീ ഷന്റെ നിരീക്ഷണം രംഭട്ട്ട്ട്ട്ട്ട്ട്ട വിവാഹ മോചിതർക്കായി പ്രവർത്തിക്കുന്ന വിവാഹ വെബ്സൈറ്റു കളിലൂടെ സ്ത്രീകളെ തട്ടിപ്പിന് ഇരയാക്കുന്ന പ്രവണത വർദ്ധിക്കുകയാണെന്ന് വനിതാ കമ്മീഷൻ അധൃക്ഷ എം